എം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ

വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് കാസർകോട്ടെ റീപോ ളിങ് പ്രഖ്യാപനമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

ജമ്മുകശ്മീരിൽ സുരക്ഷാസേന രണ്ട് ഭീകരരെ വധിച്ചു

നാളെ ഏഴാംഘട്ടത്തോടെ രണ്ട്മാസം നീണ്ടുനിന്ന പതിനേ ഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും

തമിഴ്നാട്ടിലെ വെല്ലൂരിൽ വോട്ടർമാർക്ക് പണംനൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മിഷൻ വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ് വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയോടെ പൂർണ മായും ഫലം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ റീപോളിങ് പ്രഖ്യാപിച്ച കണ്ണൂർ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് ബൂത്തുകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ ആറ് പോളിങ് ബൂത്തുകളിൽ നാളെ റീപോളിങ് നടക്കുന്ന സാഹചര്യത്തിൽ കൊളച്ചേരി വേങ്ങാട് മാടായി ചെറുതാഴം എന്നീ പഞ്ചായത്ത് പരിധിയിൽ നാളെ വൈകിട്ട് ആറുവരെ ജില്ലാ കളക്ടർ ഡ്രൈഡേ പ്രഖ്യാപിച്ചു ഈ പ്രദേശങ്ങളിലെ മദ്യശാലകളിലും ഹോട്ടലുകളിലും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും മദ്യമോ മറ്റ് ലഹരിപദാർത്ഥങ്ങളോ വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ കാസർകോട്ടെ റീപോളിങ് പ്രഖ്യാപിച്ചതെന്ന് സി

ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് റീപോളിങ്ങെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു മതിയായ ഗൌരവത്തോടെ പ്രവർത്തിക്കാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ലെന്നും കോടിയേരി കുറ്റപ്പെടുത്തി മുഖപടം മാറ്റാത്തവരെ റീപോളിങ്ങിൽ വോട്ടുചെയ്യാൻ അനു വദിക്കരുതെന്ന് സി

എം കണ്ണൂർ ജില്ലാസെക്രട്ടറി എം

ക്യാമറയിൽ മുഖം കൃത്യമായി പതിപ്പി ക്കുന്നവരെ മാത്രം വോട്ട് ചെയ്യിച്ചാൽ മതിയെന്നും അദ്ദേഹം കണ്ണൂ രിൽ അഭിപ്രായപ്പെട്ടു ഈ വ്യവസ്ഥ നിർബന്ധമാക്കിയാൽ ഇട തുമുന്നണി കൂടുതൽ വോട്ട് നേടുമെന്നും ജയരാജൻ പറഞ്ഞു പ്രധാനമന്ത്രിക്കും ബി ജെ പി അധ്യക്ഷനും ക്ലീൻചിറ്റ് നൽകിയ തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അശോക് ലവാസ കമ്മീഷൻ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കു ന്നതായി റിപ്പോർട്ട് കമ്മീഷൻ നടപടിക്കെതിരെ ലവാസ ഭിന്നഭി പ്രായം ഉന്നയിച്ചെങ്കിലും അത് രേഖകളിൽ ഉൾപ്പെടുത്തിയില്ലെ ന്നാണ് സൂചന വിയോജിപ്പ് രേഖപ്പെടുത്താത്തിൽ മുഖ്യതെര ഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ലവാസ രേഖാമൂലം പരാതി നൽകി യെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് വിവരം അശോക് ലവാസ ഈ മാസം നാല് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയ്ക്കും ബി ജെ പി അധ്യക്ഷനുമെതിരെ മാതൃകാപെരുമാറ്റച്ചട്ട പരാതികൾ പരിശോധിക്കുന്ന യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നത് ജനാധിപത്യത്തിലെ മറ്റൊരു കറുത്ത ദിനമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി സ്ഥാപനങ്ങ ളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് മോദി ഗവൺമെന്റിന്റെ മുഖ മുദ്രയായി മാറിയിരിക്കുന്നുവെന്ന് പാർട്ടി മുഖ്യവക്താവ് രൺദീപ് സുർജെവാല ട്വിറ്ററിൽ പറഞ്ഞു സുപ്രീംകോടതി ജഡ്ജിമാർ വാർത്താസമ്മേളനം നടത്തുകയും റിസർവ് ബാങ്ക് ഗവർണർ രാജി വെക്കുകയും സി ബി ഐ ഡയറക്ടറെ പുറത്താക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭിന്നിച്ചിരിക്കുകയാ ണെന്ന് സുർജെവാല പറഞ്ഞു ലോക്സഭാതെരഞ്ഞെടുപ്പിന് ശേഷം ബി

പി വിരുദ്ധ മുന്നണി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെ പറ്റി ചർച്ചചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും തെലുഗുദേശം നേതാവ് എൻ ചന്ദ്രബാബു നായിഡുവും കൂടിക്കാഴ്ച നടത്തി

ഐ നേതാവ് സുധാകർ റെഡ്ഡി ഡി രാജ എന്നിവരുമായും അദ്ദേഹം അതിന് മുമ്പ് ചർച്ച നടത്തിയിരു ന്നു ഉച്ചകഴിഞ്ഞ് എൻ

പി നേതാവ് ശരത് പവാറിനെയും എൽ

ഡി നേതാവ് ശരത് യാദവിനെയും ചന്ദ്രബാബുനായിഡു കാണും ഇന്ന് ബുദ്ധ പൂർണിമ

ഗൌതമ കുടുംബത്തിലെ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായി പൂർണ്ണത നേടിയ ദിനമാണ് ബുദ്ധ പൂർണിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ രാവിലെ സന്ദർശനം നടത്തി

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിപ്രകാരമാണ് പ്രധാനമന്ത്രി കേദാർനാഥ് സന്ദർശിച്ചത് നാളെ അദ്ദേഹം ബദരിനാഥ് സന്ദർശിക്കും തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി കളുടെയും സംഘടനകളുടെയും ഭൂമികയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടു ണ്ടെന്നും ഇതിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു കയ്യേറ്റം ഏത് പാർട്ടികളുടെ നേതൃ ത്വത്തിൽ നടന്നാലും കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പ് നടപടിയെടുക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വൃക്തമാക്കി സംസ്ഥാനത്തെ മുഴുവൻ ഭൂമി കയ്യേറ്റം പരിശോധിക്കാനും നടപടിയെടുക്കാനും ജോയന്റ് ലാന്റ് റവന്യു കമ്മീഷണറുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്

കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്തിൽ തർക്കമില്ലെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി അറിയി ച്ചു ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കേ ണ്ടത് പാർട്ടി സംസ്ഥാന കമ്മറ്റിയാണ് ഇക്കാര്യത്തിൽ ജനകീയ തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു

സൈന്യം തെരച്ചിൽ തുട രുകയാണ് കേരളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു പേരാമ്പ്ര പന്തിരിക്കരയിലെ സാലിഹ് മരിച്ചത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ്

രോഗവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർമാർക്ക് നിപയുടെ രോഗലക്ഷണ ങ്ങളുമായി സാമ്യത തോന്നിയതിനാൽ മണിപ്പാലിലെ വൈറോളജി ലാബിലേക്ക് സാമ്പിളുകൾ അയക്കുകയായിരുന്നു ഇതേ രോഗം മൂലം ഇവരുടെ പിതാവും മാതൃസഹോദരിയും മരണത്തിന് കീഴടങ്ങി

പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ സാബിത്തിനെ പരിചരിച്ചതിലൂടെ നഴ്സ് ലിനി നിപ ബാധിച്ച് മരിച്ചത് വലിയ വേദനയായി അവശേഷിക്കുന്നു രോഗത്തിൽ നിന്ന് മുക്തി നേടിയ നഴ്സിംഗ് വിദ്യാർത്ഥിനി അജന്യ ഇപ്പോൾ അവസാന വർഷ ബിരുദ പഠനത്തിലാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഇന്ന് ഭണ്ഡാരം എഴു ന്നള്ളത്ത് നടക്കും ഇന്നലെ രാത്രി നെയ്യാട്ടം നടന്നു

വയനാട്ടിലെ മുതിരേരി ക്ഷേത്ര ത്തിൽനിന്ന് കൊണ്ടുവന്ന മുതിരേരി വാൾ ഇന്ന് ഇക്കരെ കൊട്ടി യൂരിൽനിന്ന് അക്കരെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും ഭണ്ഡാരം എഴുന്നള്ളത്തിനുശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടി യൂരിൽ പ്രവേശനം അനുവദിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗി മരിച്ചത് ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പൊലീസിൽ പരാതി നൽകി

എന്നാൽ ചികിത്സയിൽ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മുതൽ മൂന്നുദിവസം വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു നാളെ പത്തനംതിട്ടയിലും മറ്റന്നാൾ ഇടുക്കിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശന ട്രയൽ അലോട്ട്മെന്റ് മറ്റന്നാൾ നടക്കും വെള്ളിയാഴ്ചയാണ് ആദ്യ അലോട്ട്മെന്റ് പ്തസ് വൺ പ്രവേശനത്തിൽ മലബാറിൽ ആവശ്യമായ സീറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യു മറ്റന്നാൾ സമരപ്രഖ്യാപന കൺവൻഷൻ നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത് അറിയിച്ചു പ്ലസ് വൺ പ്രവേശനത്തിന് മതിയായ സീറ്റില്ലാത്തതിനാൽ അരലക്ഷത്തോളം വിദ്യാർഥിക ളുടെ തുടർപഠനം ആശങ്കയിലാണെന്നും വിദ്യാഭ്യാസ ഡയരക്ടറെയും വകുപ്പ് മന്ത്രിയെയും ഇക്കാര്യം അറി യിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ടൌൺഹാളിൽ രാവിലെ നടക്കുന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കും കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യൻ നേവി ഇന്ന് ഗോകുലം കേരള എഫ്സിയെ നേരിടും വൈകിട്ട് നാലിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം പഞ്ചാബിലെ ലവ്ലി പ്രഫഷണൽ സർവകലാ ശാലയിൽ അടു ത്തമാസം നടക്കുന്ന ദേശീയ സ്റ്റുഡന്റ് ഒളിംപിക്സ് യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കേണ്ട കേരള ടീമിന്റെ പരിശീലന ക്യാംപ് താമരശ്ശേരി ഗവ ഹയർസെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ മെമ്പർ കെ എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു